പാലാ നിയമസഭാ ഉപതെരഞ്ഞെടൂപ്പിൽ എൻ

കാർഷിക കടാശ്വാസ പരിധി രണ്ട് ലക്ഷമായി ഉയർത്തി

ൾ ൽ ൾ പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നട ക്കുന്ന പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കു കൂടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്ക ളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയവർക്ക് കണ്ണൂരിൽ പാരിതോഷികം വിതരണം ചെയ്ത് സംസാ രിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ ഉന്നത കലാലയങ്ങൾ മികവിന്റെ കാര്യത്തിൽ മുന്നിലായിരുന്നുവെങ്കിലും ഇടക്കാലത്ത് ഒരു സ്തംഭനാവസ്ഥയുണ്ടാ യിട്ടുണ്ട് അത് പരിഹരിക്കുന്നതിന് ഇടപെടലുകൾ ഇതിനകം ആരം ഭിച്ചു കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൊച്ചി മെട്രോയുടെ മാഹാരാജാസ് കോളേജ് തൈക്കൂടം റൂട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും തൃപ്പൂ ണിത്തുറ പേട്ട എസ് എൻ ജംഗ്ഷൻ പാതയുടെ ശിലാസ്ഥാപനവും ജലമെട്രോ പദ്ധതിയുടെ ആദ്യ ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാ ടനവും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിക്കും കേന്ദ്ര സഹമന്ത്രി ഹർദീപ്സിംഗ് പുരി ചടങ്ങിൽ അധ്യക്ഷനാ യിരിക്കും കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി ൃ പാലാ നിയമ സഭാ ഉപ തെരഞ്ഞ ടു പ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബിജെപി കോട്ടയം ജില്ലാ പ്രസിഡന്റ് എൻ ഹരി മത്സരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലായിൽ മത്സരിച്ച എൻ ഹരിയുടെ സ്ഥാനാർത്ഥിത്വം ഇന്നലെ രാത്രിയാണ് ബിജെപി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത് ഇതോടെ പാലാ ഉപതെര ഞ്ഞെടുപ്പിലെ ചിത്രം വൃക്തമായി അതേസമയം യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന് കേരളാ കോൺഗ്രസ് എമ്മിന്റെ തെരഞ്ഞെടുപ്പു ചിഹ്നമായ രണ്ടില അനുവ ദിക്കുന്നതു സംബന്ധിച്ച് തർക്കം മുറുകി രണ്ടില ചിഹ്നം അനുവദി ക്കണമെന്നാവശ്യപ്പെട്ട് ജോസ്

പാർട്ടി സ്റ്റിയറിംഗ് കമ്മറ്റി നിർദേശിച്ച സ്ഥാനാർത്ഥിയായതിനാൽ പാർട്ടി ചിഹ്നം അനുവദിക്കണമെന്ന് അവർ അറിയിച്ചു എന്നാൽ വർക്കിങ്ങ് ചെയർമാൻ എന്ന നിലയിൽ പി

ചില സാങ്കേതിക തടസ്സങ്ങളുള്ളതിനാൽ രണ്ടില ചിഹ്നം നൽകാനാവില്ലെന്ന് പി

ജോസഫും പറയുന്നു

വോട്ടെണ്ണൽ നാളെ രാവിലെ പത്തിന് ആരംഭിക്കും കാർഷിക കടാശ്വാസ പരിധി രണ്ട് ലക്ഷമായി ഉയർത്തി ഒരു ലക്ഷം രൂപയാണ് നേരത്തെ കടാശ്വാസ് കമ്മീഷൻ പരിഗണിച്ചിരു ന്ന പരിധി പുതിയ ഉത്തരവനുസരിച്ച് ഇടുക്കി

സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ കാർഷിക മേഖലയിലേക്ക് വ്യാപിപ്പിച്ചാൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സ്പീക്കർ പി

തൃശൂർ മണ്ണുത്തി കാർഷിക സർവ്വകലാ ശാലയിൽ ലോക നാളികേര ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉൽപ്പാദന വിപണന വർദ്ധന ലക്ഷ്യമിട്ട് നാളികേര അധിഷ്ഠിത ഉൽപ്പന്നമായ നീര പൊതുബ്രാന്റിൽ പുറത്തിറക്കാൻ നടപടിയെടു ക്കുമെന്ന് ചടങ്ങിൽ അധൃക്ഷനായിരുന്ന മന്ത്രി വി

പതിനായിരം ലിറ്റർ നീര കൺസോർഷൃം അടിസ്ഥാ നത്തിൽ ഉൽപ്പാദിപ്പികുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പട്ടിക വർഗ്ഗക്കാരുടെ സുസ്ഥിര വികസനമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എ

കൊച്ചിയിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

പെൻഷൻ കുടിശ്ശികയും സപ്ലൈകോ വഴി നൽകുന്ന ഓണക്കിറ്റും വീടുകളിൽ എത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമം വികസനം എന്നിവ ലക്ഷ്യ മാക്കി തൃക്കാക്കര നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച അംബേ ദ്ക്കർ അയ്യൻകാളി മുൻസിപ്പൽ ടവറിന്റെ ഉദ്ഘാടനം മറ്റൊരു ചട ങ്ങിൽ മന്ത്രി ബാലൻ നിർവ്വഹിച്ചു

സഹകരണ ഓണം വിപണിയുടെ ഉദ്ഘാടനം തിരു വനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

എല്ലാ മേഖലകളും അഴിമതി മുക്തമാക്കാനാണ് ഗവൺമെന്റ് ശ്രമി ക്കുന്നതെന്ന് മന്ത്രി ടി

കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാതല ഓണം വിപ ണന മേള ഉദ്ഘാടനംചെയ്യുകയായിരുന്നു മന്ത്രി കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ പൊതുവിതരണ ശൃംഖലകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി എം

ഇടുക്കി ജില്ലാ സപ്ലൈകോ ഓണം ഫെയർ നെടുങ്കണ്ടത്ത് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഓണത്തിനു മുന്നോടിയായി സംസ്ഥാനത്തെ പട്ടിക വർഗ കുടും ബങ്ങൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച്ച കൽപ്പറ്റയിൽ മന്ത്രി എ

ബാലൻ നിർവ്വഹിക്കും

വെസ്റ്ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റും ഇന്ത്യ തൂത്തുവാരി

മൂന്ന് വീതം വിക്കറ്റ് എടുത്ത മുഹമ്മദ് ഷമിയും രവീന്ദ്ര ജഡേജ യുമാണ് ഇന്ത്യയുടെ വിജയ ശിൽപികൾ ഹനുമ വിഹാരിയെ കളി യിലെ താരമായി തെരഞ്ഞെടുത്തു ഇതോടെ ഐസിസി വേൾഡ് ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ ഒന്നാമതെത്തി

കേരളത്തിനായി കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർസെക്കൻ്ററി സ്കൂൾ ടീമാണ് കളത്തിലിറങ്ങുന്നത് ഗ്രൂപ്പ് ഇ യിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും മുഴുവൻ പോയിന്റുമാ യാണ് ടീം ക്വാർട്ടർ ഫൈനലിലെത്തിയത് കേരള പെൺകുട്ടികൾ ഇതാദ്യമായാണ് അവസാന എട്ടിലെത്തുന്നത് ഇന്ത്യൻ ദേശീയതയുടെ മുഖമായ ഖാദി മേഖല നേരിടുന്ന പ്രതി സന്ധി മറികടക്കാൻ നവംബർ മാസത്തോടെ നൂതന പദ്ധതികൾ ആവി ഷ്ക്കരിക്കുമെന്ന് മന്ത്രി ഇ

കണ്ണൂ രിൽ ഖാദി തൊഴിലാളികളുടെ പുതുക്കിയ മിനിമം വേതന വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വനൃജീവി ആക്രമണം കണക്കിലെടുത്ത് ഉൾക്കാടുകളിൽ താമ സിക്കുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെയടക്കം പുനരധിവസി പ്പിക്കാൻ നടപടി തുടങ്ങിയതായി മന്ത്രി കെ

തൃശൂർ ജില്ലാ വനം അദാലത്ത് ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം സംസ്ഥാന ഹജ്ജ് കമ്മറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ മടക്ക യാത്ര ഇന്നവസാനിക്കും

കാല വർഷ ക്കെ ടു തി യിൽ ദു രി ത മ നു ഭ വി ക്കു ന്ന വർക്ക് ഗവൺമെന്റ് എല്ലാവിധത്തിലും സഹായം നൽകുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു വയ നാട് പുത്തുമല ഉരുൾപ്പൊട്ടൽ മേഖല സന്ദർശിച്ച ശേഷം മാധ്യമപ്ര വർത്തകരോട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് വെള്ളിയാഴ്ച്ച വരെ കനത്ത മഴയ്ക്ക് സാധൃത യെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറി യിച്ചു അതിശക്തമായ മഴ കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

നിലവിൽ ജില്ലയിലെ മംഗലം കാഞ്ഞിരപ്പുഴ വാളയാർ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ഏതു വെല്ലുവിളികളും ഏറ്റെടുക്കാൻ പര്യാപ്തമായ ദുരന്ത നിവാ രണ സേനയെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടക്കമായി

പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വ ത്തിൽ ദുരന്ത നിവാരണ സേന രൂപീകരിക്കണമെന്ന ഗവൺമെന്റ് നിർദേശത്തിന്റെ ഭാഗമായാണിത്

എഫ് ജില്ലാക്കമ്മറ്റികളുടെ ആഭിമുഖൃത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിനും കലക്ടറേറ്റുകൾക്കും മുമ്പിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും പ്രളയാനന്തര പുനരധിവാസ പ്രവർത്തനത്തിൽ ഗവൺമെന്റ് പൂർണമായും പരാജയപ്പെട്ടെന്നും പി

സി യുടെ വിശ്വാസൃത തകർത്തുവെന്നും ആരോപിച്ചാണ് സമരം ഗവൺമെന്റിന്റെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും സമരത്തിൽ യു ഡി എഫ് ഉന്നയിക്കും തൃശൂർ ജില്ലയുടെ രാപ്പകൽ സമരം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് കോട്ടയം വയനാട് ജില്ല കളുടെ സമരം പിന്നീട് തീരുമാനിക്കും

ഓണം പ്രമാണിച്ച് സ്ഥകാര്യ ബസുകളുടെ ഉത്സവകാല ചൂഷണം ഒഴിവാക്കുവാനായി കോഴിക്കോട് ബെങ്കലൂരു റൂട്ടിൽ കെഎസ് ആർടിസി കുറഞ്ഞ ചിലവിൽ മലയാളികളെ നാട്ടിലെത്തിക്കാനായി അധിക സർവ്വീസുകൾ നടത്തും

കോഴിക്കോട് കുന്ദമംഗലത്ത് ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രക്കാരൻ മരിച്ചു

കാസർകോട് ജില്ലയിലെ സ്ഥകാര്യ ബസ്സുകൾ നാളെ പണിമുട ക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു